എം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് വിഭവസമാഹ രണത്തിന് വിവിധ പദ്ധതികൾ ആവിഷ്ക്കരിച്ചതായി മുഖ്യ മന്ത്രി പിണറായി വിജയൻ കേരളത്തിന് കൂടുതൽ പ്രളയദുരിതാശ്ചാസം അനുവദിക്കണ മെന്ന് സംസ്ഥാനത്തെ എം പി മാരുടെ സംഘം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു

എ

ജി സെന്ററാണെന്ന് ബി

എസ് ശ്രീധരൻപിള്ള മുൻപ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ചിതാഭസ്മ നിമജ്ജന യാത്ര നാളെ തിരുവനന്തപുരത്ത് സമാപിക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പയിൻഡ് ഗ്രാജ്വേറ്റ് ലവൽ സീനിയർ സെക്കണ്ടറി ലെവൽ ഫലപ്രഖ്യാപനം സുപ്രീംകോ ടതി സ്റ്റേ ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിഭവ സമാ ഹരണത്തിന് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം വിവിധ പദ്ധതി കൾ ആവിഷ്ക്കരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിദേശ രാജ്യങ്ങളിലും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും ധനസമാഹരണത്തിന് സംവിധാനമൊരുക്കും ജില്ലകളിൽ മന്ത്രി മാരുടെ നേതൃത്വത്തിൽ പണം നേരിട്ട് സ്വീകരിക്കാൻ വഴിയൊരു ക്കും

കേരളത്തിന്റെ പുനർനിർമ്മാണ പദ്ധതികളുടെ കൺസൾട്ടന്റ് പാർട്ണറായി അന്താരാഷ്ട്രതലത്തിൽ പ്രശസ്തമായ കെ

യെ നിയമിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ഇവ രുടെ സേവനം സൌജന്യമായിരിക്കും പ്രളയത്തിൽ തകർന്ന വീടു കളുടെയും കടകളുടെയും ഡിജിറ്റൽ വിവരശേഖരണത്തിന് പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തും പ്രളയത്തിൽ വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കൂടുംബശ്രീ വഴി ഒരുലക്ഷം രൂപവരെ പലിശരഹിത വായ്പ നൽകും ഇതിന്റെ പലിശ സംസ്ഥാന ഗവൺമെൻറ് അടയ്ക്കുമെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി പ്രളയ ദുരിതാശ്ചാസമായി കേരളത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ

എഫ് യു

എഫ് എംപിമാരുടെ സംഘം കേന്ദ്രഗ്രാമവികസന മന്ത്രി ചൌധരി ബീരേ ന്ദർസിംഗിനെ കണ്ടു ദുരിതബാധിത പ്രദേശങ്ങളിലെ ശുചീകരണ ജോലികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും തൊഴിൽ വേതന വിഹിതം വർധിപ്പിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി കെ സി വേണുഗോപാൽ എം പി ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റോഡുകളുടെ പുനരുദ്ധാര ണവും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് മന്ത്രി അറി യിച്ചതായി വേണുഗോപാൽ പറഞ്ഞു ആരോഗ്യമന്ത്രി ജെ പി നദ്ദ യുമായും സംഘം കൂടിക്കാഴ്ച നടത്തി കേന്ദ്രധനമന്ത്രി അരുൺജെയ്റ്റ്ലിയെയും ഇന്ന് കാണുന്നുണ്ട് അടുത്ത ശബരിമല തീർത്ഥാടനകാലത്തിനു മുമ്പായി പമ്പയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിർമ്മാണപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപവത്ക രിച്ചിട്ടുണ്ട്

വി വേണു കെ ആർ ജ്യോതി ലാൽ ടിങ്കു ബിസ്വാൾ എന്നീ മുതിർന്ന ഉദ്യോഗസ്ഥരും ഡി

പി ലോക്നാഥ് ബെഹ്റയും സമിതിയിൽ അംഗങ്ങളാണ്

എ

കെ ജി സെന്ററാണെന്ന് ബി

പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മുൻ പ്രധാനമന്ത്രി എ

വാജ്പേയിയുടെ ചിതാഭസ്മ നിമജ്ജന യാത്രയ്ക്ക് കുറ്റിപ്പുറത്ത് നൽകിയ സ്വീകരണത്തിനിടെ മാധ്യമപ്ര വർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ത്തിന്റെ പ്രളയകാര്യത്തിൽ കോൺഗ്രസ് അനാസ്ഥയാണ് കാണി ച്ചതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു ചിതാഭസ്മം നാളെ തിരുന്നാവായയിൽ നിമജ്ജനം ചെയ്യും പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സംസ്ഥാന ഗവൺമെൻറ് ഇന്ന് വിശദീകരണം നൽകും നേരത്തെ ഹർജി പരിഗണിച്ച കോടതി ദുരിതാശ്ചാസ നിധിയിലേക്ക് എത്തുന്ന തുകയുടെ വിനിയോഗത്തെ സംബന്ധിച്ച് ആരാഞ്ഞിരുന്നു പൂഴ്ത്തിവെപ്പ് നികുതിവെട്ടിപ്പ് എന്നിവയിൽ സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാകണമെന്നും കോടതി ഓർമ്മിപ്പിച്ചിരുന്നു വനമേഖലയിലും ഉരുൾപ്പൊട്ടിയെന്ന ചില നിയമസഭാം ഗങ്ങളുടെ പ്രസ്താവന അജ്ഞത കൊണ്ടാണെന്ന് സി

എ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു എല്ലാവരും പരിസ്ഥിതിയെ ക്കുറിച്ച് ഒരുപോലെ ചിന്തിക്കുമെന്ന് പ്രതീക്ഷി ക്കരുതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു പ്രളയത്തിൽ നഷ്ടപ്പെട്ട വാഹനരേഖകൾ ഉടമകൾക്ക് പുതുക്കി നൽകുന്നതിന് നടപടി ആരംഭിച്ചതായി മോട്ടോർ വാഹന വുകപ്പ് അറിയിച്ചു വീട് പ്രളയം ബാധിച്ചെന്ന് വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രവുമായി ആർ ടി ഒ ഓഫീസിനെ സമീപിച്ചാൽ നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പ് ലഭിക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നോ ഇ സേവാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷാ ഫോം സമർപ്പിക്കണമെന്നും അധികൃതർ അറിയിച്ചു മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ചിതാഭസ്മ നിമജ്ജന യാത്ര നാളെ തിരുവനന്തപുരത്ത് സമാപിക്കും തുടർന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ച് കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറം തിരു വനന്തപുരം ജില്ലയിലെ തിരു വല്ലം എന്നിവിടങ്ങളിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കാസർകോട്ട് നിന്നാണ് യാത്ര ആരംഭിച്ചത് വാഹനാപകട കേസുകളുടെ അന്വേഷണ ചുമതല ഇനി ലോക്കൽ പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകും കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം നഗരങ്ങളിൽ ഇത് നാളെ മുതൽ നിലവിൽ വരും ട്രാഫിക് പോലീസ് സ്റ്റേഷനുകളാണ് വർഷങ്ങളായി വാഹനാപകട കേസുകൾ കൈകാര്യം ചെയ്തിരുന്നത്

പോലീസ് നയങ്ങളിലെ പരിഷ്കാരങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിലാണ് ഇതുസംബന്ധിച്ച് ഉത്തരവിറങ്ങിയത്

ഇറക്കുമതിക്കാരുടെ ആവശ്യം വർദ്ധിച്ചതും ക്രൂഡോയിൽ വില കൂടിയതുമാണ് ഡോളറിന് ശക്തി പകരുന്നത്

ഡിസംബറിൽ ജമ്മുക ശ്മീരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഹർജി പരിഗ ണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റണമെന്ന് ജമ്മുകശ്മീർ ഗവ ൺമെന്റും കേന്ദ്രഗവൺമെന്റും സുപ്രീംകോടതിയിൽ ആവശ്യപ്പെ ട്ടിരുന്നു ഇത് പരിഗണിച്ചാണ് കോടതി നടപടി

ക്രമക്കേടുകളിലൂടെ അനർഹർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി ഹാരിസൺ മലയാളം കമ്പനിയുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറുടെ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി ക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ അപ്പീൽ ഹർജി നൽകി സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞ കാര്യങ്ങൾ ഹൈക്കോടതി കൃത്യമായി പരിശോധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് കോടതിയെ സമീപിച്ചത്

ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ഹാരിസൺ ഹാജരാക്കിയ രേഖ വ്യാജമാണെന്നും ഇതുസംബന്ധിച്ച് വിജി ലൻസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാ ട്ടുന്നു

സി അഴിമതിക്കേസിൽ ആർ

ഡി നേതാവ് ലാലുപ്രസാദ് യാദവിന്റെ ഭാര്യ റാബ്രിദേവിയ്ക്കും മകൻ തേജസി യാദവിനും ഡൽഹി പട്യാല കോടതി ജാമ്യം അനുവദിച്ചു

ലാലുപ്രസാദ് യാദവിനെതിരെ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെ ടുവിച്ച പ്രത്യേക ജഡ്ജി അരുൺ ഭരദാജ് കേസിൽ വാദം കേൾക്കൽ ഒക്ടോബർ ആറിലേക്ക് മാറ്റി ഒറ്റരാത്രി കൊണ്ട് ഇന്റർനെറ്റ് സെൻസേഷനായി മാറിയ ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലെ മാണിക്യമലരായ പൂവി എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ച നടി പ്രിയപ്രകാശ് വാര്യർക്കെതിരായ എഫ് ഐ ആർ സുപ്രീംകോടതി റദ്ദാക്കി

സിനിമയിലെ പാട്ടിനെക്കുറിച്ച് പരാതിയു ണ്ടെങ്കിൽ പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു സിനിമയുടെ സംവിധായകൻ ഒമർലുലുവും പ്രിയപ്രകാശ് വാര്യരും നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി നടപടി ജമ്മുകാശ് മീരിൽ ആറ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി പോലീസ് ഉദ്യാഗസ്ഥരുടെ വീടുകളിൽ പരിശോധന നടത്തിയ ശേഷമാണ് തീവ്രവാദി സംഘം കുടുംബാം ഗങ്ങളെ തട്ടിക്കൊണ്ടുപോയത് തീവ്രവാദികളുടെ ബന്ധുക്കളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരന്തരം അറസ്റ്റ് ചെയ്യുന്നതിലുള്ള പ്രതിഷേധമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നു ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് വനിതാ സ്കാഷ് ടീമിനത്തിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു സെമിയിൽ മലേഷ്യയെ അട്ടിമറിച്ചാണ് ഇന്ത്യയുടെ ദീപിക പള്ളിക്കൽ ജോഷ്ന ചിന്നപ്പ സഖ്യം ഫൈന ലിലെത്തിയത് കേരളമൊഴികെ സംസ്ഥാനങ്ങളിൽ ആദായനികുതി റിട്ടേൺ സമർപ്പണം പൂർത്തിയാകാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ റിട്ടേൺ സമർപ്പിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധന അഞ്ച് കോടിയിലധികം റിട്ടേണുകൾ ഇന്നലെ വരെ സമർപ്പിക്കപ്പെട്ടു

ജില്ലയിൽ കരിങ്കൽ ക്വാറികൾ കണ്ണൂർ പ്രവർത്തിക്കുന്നതിനുള്ള നിരോധനം തുടരുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കാലവർഷം കനത്തനാശം വിതച്ചതിനെ തുടർന്ന് ചെങ്കൽ കരിങ്കൽ കാറികളുടെ പ്രവർത്തനം നിർത്താൻ നേരത്തേ ഉത്തരവിട്ടിരുന്നു എന്നാൽ മഴ കുറഞ്ഞതിനെ തുടർന്ന് ചെങ്കൽ കാറികൾക്കുള്ള നിരോധനം മാത്രമാണ് പിൻവലിച്ച തെന്നും കരിങ്കൽ കാറികൾക്കുള്ള നിരോധനം തുടരുമെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്ഥാപിച്ച ഇൻസ്ട്രുമെന്റ് ലാന്റിങ് സംവിധാനത്തിന്റെ കൃത്യത ഇന്ന് പരി ശോധിക്കും ഇതിനായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാലി ബ്രേഷൻ വിമാനം ഇന്നലെ വൈകിട്ട് വിമാനത്താവളത്തിലെത്തി